നിയമസഭ സംസ്ഥാനത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്തതെന്ന് മന്ത്രി ജെ

ഇ ടെണ്ടറിലെ കാലതാമസം ഒഴിവാക്കാനാണ് മുദ്ര വച്ച ടെണ്ടറിലൂടെ ഇറക്കുമതി ചെയ്യാൻ കരാർ ക്ഷണിച്ചത്

മാരക രോഗം നേരിടുന്ന കുടുംബങ്ങൾക്ക് ചികിത്സാ ആനൂകൂല്യം ലഭിക്കാൻ എ

എൽ കാർഡുകൾ ബി

എൽ വിഭാഗത്തിലേക്ക് മാറ്റി നൽകാനുള്ള ഇടപെടൽ നടത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പി

മാനന്തവാടി എം

എ ഒ ആർ കേളുവിന്റെ ചോദൃത്തിന് മറുപടിപറയുകയായിരുന്നു മന്ത്രി

എൽ